ഇന്ന് ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ നേരിടും

ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്നു അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കു ശക്തമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു

പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിൽ നൂറോളം ഹെക്ടർ നെൽകൃഷി വെള്ളത്തിനടിയിലായി

കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ഉരുൾ പൊട്ടൽ സാധ്യത് കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു